അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് ചരിത്രപരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

താണ് ബജറ്റെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബജറ്റ് കേരളത്തെ കൈപിടിച്ചുയർത്തുന്നതെന്ന് ബി ജെ

സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ

രാജ്യത്തെ സമ്പദ്വൃവസ്ഥ തിരിച്ചുവരവിന്റെ പ്ടൂതയിലാണെന്നും ഇത് ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ ക്ലേന്റ് സർക്കാർ സ്വീകരിച്ചു വരുന്നതായും ബജറ്റ് അവതരൂണ്ട്പ്പേള്യിൽ ധനമന്ത്രി പറഞ്ഞു ആരോഗ്യം അടിസ്ഥാന സ്ഥാകര്യ് മേഖല സമഗ്ര വികസനം മനുഷ്യ വിഭവത്തിന്റെ പ്രുന്ന്ർവിന്യാസം നൂതന ആശയങ്ങൾ ലളിതമായ ഭരണ നിർവീഹ്ണം എന്നീ ആറ് ഘടകങ്ങളിലൂന്നിയാണ് ധനമന്ത്രി ബജറ്റ് പ്രഖ്യാപിച്ചത് നിരവധി ജനപ്രിയ പ്രഖ്യാപനങ്ങളിലൂന്നിയുള്ള ബജറ്റ് കേരളത്തിനും സവിശേഷ പ്രാധാന്യമാണ് നൽകുന്നത് ആദ്യ കടലാസ് രഹിത ബജറ്റാണെന്ന പ്രത്യേകതയും ഇക്കുറിയുണ്ടായിരുന്നു

ആവശൃം വന്നാൽ കൂടുതൽ തുക അനുവദിക്കും

പ്രാഥമിക തലം മുതലുള്ള ആരോഗ്യ സംവിധാനങ്ങളുടെ വികസനം സാധ്യമാക്കുക നിലവിലുള്ള ആരോഗൃ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുത്തുകയും പുതിയവ സ്ഥാപിക്കുകയും ചെയ്യുക്ക് തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പദ്ധതി

ആദായ നികുതി വിവരങ്ങൾ പുനഃപരിശോധിക്കാനുള്ള കാലപരിധി ആറിൽ നിന്ന് മൂന്ന് വർഷമാക്കി ചുരുക്കി ചെറുകിട നികുതിദായകരുടെ ആദായ നികുതി തർക്കങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കാനും തീരുമാനമായി

സി

ഡി ബി ഐ ബാങ്ക് ബി

എം എൽ തുടങ്ങിയവയുടെ ഓഹരി വിറ്റഴിക്കൽ വരും വർഷം പൂർത്തിയാക്കും

ഈ തീരുമാനത്തെ കേന്ദ്ര ഉപരിതല ഗതാഗത ദേശീയപാത മന്ത്രി നിതിൻ ഗഡ്കരി സ്വാഗതം ചെയ്തു

രാജ്യത്തെ എല്ലാവർക്കു് കോവിഡ് വാക്സിൻ ലഭ്യമാക്കുന്നിന് ബജറ്റ് ശ്രദ്ധ നൽകിയതായും ആരോഗ്യമന്ത്രി അഭിപ്രായപ്പെട്ടു

കൂടുതൽ പൊതുമേഖല സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്ക രിക്കാനും ഇൻഷുറൻസ് മേഖലയിലടക്കം വിദേശ നിക്ഷേപം വർധിപ്പിക്കാനും നിർദേശങ്ങളുള്ള ബജറ്റ് എല്ലാ മേഖലകളിൽ നിന്നും സർക്കാർ പിൻവാങ്ങുകയും അങ്ങനെ രാജ്യത്തെ പൂർണ മായി കച്ചവട താൽപരൃങ്ങൾക്കു വിട്ടുനൽകുകയും ചെയ്യുന്ന താണ് ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം പറഞ്ഞു

ജെ

കേരളത്തിനെ കൈപിടിച്ചുയർത്തുന്ന ബജറ്റാണ് ഇത്